ഇന്ന് തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഉദ്ഘാടനം ചെയ്യും

ആരോഗ്യ യോജന ന്ട്പ്പാക്കാനുള്ള ദേശീയ ആരോഗ്യ അതോറിറ്റിയായി പുന്നുസ്ംഘടിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി

കേരളത്തിൽ ശബരിമല കർമ്മ സമിതിയുടെ പകൽ ഹർത്താൽ

അവസാനത്തെയും ക്രിക്കറ്റ് ടെസ്റ്റിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റ് ചെയ്യുന്നു ഇന്തൃയ്ക്ക് ഒരു വിക്കറ്റ് നഷ്ടമായി

പ്രധാന മന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും

ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും പ്രസൂതന് സംരംഭങ്ങളുടെയും വിശാലമായ സാധ്യതകളും ശ്ശാസ്ത്രാ്വബോധവും വളർത്തുക എന്നത് ശ്രീ

ഭാവിഭാരതം ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും എന്നതാണ് ഈ വർഷത്ത് ്ൾാസ്ത്ര കോൺഗ്രസിന്റെ ആശയം രാജ്യത്തെ കാർഷിക്യിമേഖലയ്ക്കും നൂതന സംരംഭങ്ങൾക്കും ശാസ്ത്രത്തിന്റെയും സ്പാടങ്കേതിക വിദ്യയുടെയും സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ശാസ്ത്ര കോൺഗ്രസ് വഴി ഒരുക്കും

നോബേൽ പുരസ്കാര ജേതാക്കൾ ശാസ്ത്രജ്ഞർ ശാസ്ത്ര നയരൂപീകരണ വിദഗ്ധർ യുവ ഗവേഷകർ ഭരണ രംഗത്തെ വിദഗ്ധർ കേന്ദ്ര മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും

ആർ ഡി ഒ ഐ എസ് ആർ ഒ എയിംസ്

ജി സി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ പ്രമുഖർ ശാസ്ത്ര കോൺഗ്രസിന്റെ വിവിധ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും കുട്ടികളുടെ ശാസ്ത്ര കോൺഗ്രസ് നാളെയും സ്ത്രീകളുടേത് ശനിയാഴ്ചയും നടക്കും

നയ തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പാ ക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രിസഭ തിരുമാനം അറിയിച്ച കേന്ദ്ര മന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു

പദ്ധതിയിലും തീരുമാനങ്ങ ളിലും സുതാര്യതയും ഉത്തരവാദിത്തവും ഉറപ്പാക്കുമെന്ന് ശ്രീ രവി ശങ്കർ പ്രസാദ് അറിയിച്ചു

കേന്ദ്ര സ്സ്ഥാന തലങ്ങളിൽ തൊഴിലാളി സംഘടനകളുടെ അംഗ്ലീക്ടർത്തിനുള്ള നടപടികൾ ബില്ലിൽ വൃവസ്ഥ ചെയ്തിട്ടുണ്ട് ഉത്ാഴിലാളി താല്പര്യം സംബ ന്ധിച്ച ത്രികക്ഷി സംഘടനകളിൽ തൊഴിലാളി പ്രതിനിധികളുടെ നാമനിർദ്ദേശ പ്രക്രിയ സുതാര്യമാക്കാൻ ബിൽ സഹായകരമായി രിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ മുന്തി സന്തോഷ് കുമാർ ഗാംഗ്വാർ പറഞ്ഞു

സംസ്ഥാനത്തെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഈ തീരുമാനം ദൌർഭാഗ്യകരമാ ണെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു വന്ദേമാതരം വെറും ഒരു ഗാനം മാത്രമല്ലെന്നും സ്വാതന്ത്യപ്രസ്ഥാനത്തിന്റെ അടയാളവും ഇന്ത്യാക്കാരുടെ വികാരവുമാണെന്ന് ശ്രീ അമിത്ഷാ അഭിപ്രായ പ്പെട്ടു

സംസ്ഥാനത്തെ ജനങ്ങളുടെ ഭാഷാപരമായ വ്യക്തിത്വവും സാംസ്കാരിക താല്പര്യങ്ങളും നിലനിർത്താൻ തീരുമാനം പ്രയോജനം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ഇതോടെ ഡൽഹി വാരാണാസി യാത്ര ്ദൈർഘ്യം പതിനൊന്നര മണിക്കൂ റിൽ നിന്ന് എട്ടു മണിക്കൂറായി കുറയും

ഉന്നത ഉദ്യോഗസ്ഥ വ്യാപാര പ്രതിനിധി സംഘവും പ്രധാനമന്ത്രിയെ അനുഗമിക്കും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം

പോർബന്ദറിൽ മുഖ്യമന്ത്രി വിജയ് റൂപാനിയും മഹേസനയിൽ ഉപമുഖ്യമന്ത്രി നിതിൻ പട്ടേലും പരിപാടി ഉദ്ഘാടനം ചെയ്യും

ജെ പി പിന്തുണ പ്രഖ്യാപിച്ചു

അതേ സമയം ഹർത്താലിമായി സഹകരിക്കില്ലെന്നും കടകൾ പതിവുപോലെ തുറന്നുപ്പ്പർത്തിക്കുമെന്നും വ്യാപാരി വ്യവസായി സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്

ജി

അക്രമം നടത്തുകയോ സഞ്ചാര സ്വാതന്ത്ര്യം തടയുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും കടകൾ അടപ്പിക്കാൻ ശ്രമിക്കുന്നവരെ ഉടനടി അറസ്റ്റ് ചെയ്യുമെന്ന് ഡി ജി

ശബരിമല തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരി ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്

അക്രമങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഉണ്ടാവാതിരിക്കാനും സാധാരണ ജനജീവിതത്തെ ബാധിക്കാതിരിക്കാനും കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്

അനിഷ്ട സംഭവങ്ങളുണ്ടാകാതിരി ക്കാൻ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരെ പ്രധാന കേന്ദ്രങ്ങളിൽ നിയോഗിച്ചു

ടൈംടേബിളിൽ മാറ്റമില്ല വിവിധ സർവകലാ ശാലകൾ ഇന്നു നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റി വച്ചു

എന്നാരോപിച്ച് യു ഡി എഫ് ഇന്ന് സംസ്ഥാന വ്യാപകമായി കൃതിദിനം ആചരിക്കും സെക്രട്ടറിയേറ്റിനു മുന്നിൽ മാർച്ചും ധർണ്ണയും നടത്തുമെന്ന് കൺവീനർ ബന്നി ബഹ്നാൻ അറിയിച്ചു

ടോസ് നേടിയ ഇന്ത്യ ബാറ്റ് ചെയ്യുകയാണ്

വിശദാംശങ്ങളുമായി വിജേഷ്

മെൽബണിലെ വിജയത്തോടെ ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യ നിലനിർ ത്തിയിട്ടുണ്ട്

സിഡ്നി ടെസ്റ്റ് ഇന്ത്യയെക്കാളേറെ സമ്മർദ്ദം നൽകുന്നത് ഓസ്ട്രേലിയക്കാണ്

എസ് പ്രണോയിയെ പരാജയപ്പെടുത്തി

ഇന്ന് പുനെ ഏയ്സസ് അവാധേ വാറിയേഴ്സി നെ നേരിടും

വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം

യുവനിരയുമായി ഇറങ്ങുന്ന ഇന്ത്യൻ സംഘത്തിന്റെ ആദ്യ മത്സരം ആറാം തീയതി തായ്ലന്റിനൊപ്പമാണ് സുനിൽ ഛേത്രിയാണ് നായകൻ മലയാളി താരങ്ങളായ അനസ് ആഷിഖ് എന്നിവരും ടീമിലുണ്ട്